ജമ്മുകാശ്മീരിൽ ജനജീവിതം സാധാരണ നിലയിലേയ്ക്ക്

ഹൈസ്ക്കൂളുകൾ ഇന്ന് തുറന്നു പ്രവർത്തിച്ചു

രാജ്യവ്യാപകമായി നടക്കുന്ന ഫിറ്റ് ഇന്ത്യാ മൂവ്മെന്റിന് ന്യൂഡൽഹിയിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടക്കം കുറിക്കും

നാളെ പത്തോളം പൊലീസ് സ്റ്റേഷൻ പരിധികളിൽകൂടി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തും ഇവിടങ്ങളിൽ ടെലഫോൺ ബന്ധവും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു അനന്ത്നാഗ് ബാരാമുള്ള ബഡ്ഗാം കുപ്പാര ജില്ലകളിൽ ടെലഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തന സജ്ജമായി

പ്രൈമറി മിഡിൽ ലെവൽ സ്കൂളുകൾ നേരത്തെ പ്രവർത്തനും ആരംഭിച്ചിരുന്നു

ഓരോ ജീവനും വിലപ്പെട്ടതാണ്ണെന്നും ഒരു ജീവൻപോലും നഷ്ടപ്പെടാൻ ഗവൺമെന്റ് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കുപ്വാര ഹന്ദ്വാര ജില്ലകളിൽ മൊബൈൽ ഫോൺ ബന്ധം പുനസ്ഥാപിച്ചതായും മറ്റ് ജില്ലകളിൽ താമസിയാതെ പുനസ്ഥാപിക്കുമെന്നും ഗവർണർ അറിയിച്ചു

സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിനും ജമ്മുകാശ്മീർ ഇതു ഭരണകൂടത്തിനും കോടതി നോട്ടീസ് അയച്ചു ഗവൺമെന്റിന് വേണ്ടി അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും കോടതിയിൽ ഹാജരായതിനാൽ കേന്ദ്ര ഗവൺമെന്റിന് നോട്ടീസ് നൽകേണ്ട ആവശ്യമില്ലെന്ന വാദത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് തള്ളി കോടതി പറയുന്ന കാര്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കൈമാറുമെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു ഒക്ടോബർ ആദ്യവാരം നടക്കുന്ന വാദം കേൾക്കലിൽ ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായി ബെഞ്ച് അറിയിച്ചു

സ്മാധാനം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കില്ലെന്നും എന്നാൽ ഇന്ത്യി ആക്രമിക്കപ്പെട്ടാൽ തക്കതായ മറുപടി നൽകുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു വിശാഖപട്ടണത്ത് നേവൽ സയൻസ് ടെക്നോളജിക്കൽ ലബോറട്ടറിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷത്തോട്ട്നുബന്ധിച്ചുള്ള സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ആഗ്രഹിക്കുന്നീല്ല ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഇന്ത്യ പാകിസ്ഥാനുമായി നടക്കുന്നുങ്കിൽ അത് പാക് അധീന കാശ്മീരിനെ കുറിച്ചായിരിക്കുമെന്നും ഉപരാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ദേശീയ സുരക്ഷയ്ക്ക് കരുത്ത് പകർന്നുകൊ് അമ്പത് വർഷം പിന്നിട്ട എൻ

പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും ശാസ്ത്രജ്ഞന്മാരെ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു

ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവെ ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ നിക്കോളായി കുഡാഷെവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നതാണ് റഷ്യയുടെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ സിംല കരാർ ലാഹോർ പ്രഖ്യാപനം എന്നിവയെ അടിസ്ഥാനമാക്കി പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആവശ്യപ്പെടാത്തിടത്തോളം മധ്യസ്ഥശ്രമം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ റഷ്യയ്ക്ക് ഒരു പങ്കും വഹിക്കാനില്ലെന്ന് റഷ്യൻ എംബസ്സി ഡെപ്യൂട്ടി ചീഫ് റൊമാൻ ബാബുഷ്കിൻ വ്യക്തമാക്കി

ജെ

കൂടുതൽ വിവരങ്ങളുമായി വിനോദ്കുമാർ വോയിസ് രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് സുസ്ഥിരമായ സമാധാന അന്തരീക്ഷം അനിവാര്യമാണെന്ന് ശ്രീ

വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിന് കരുത്തില്ലായെങ്കിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിന് തടസ്സമു ാകുമെന്ന് ശ്രീ ഷാ പറഞ്ഞു

പൊലീസ് പരിഷ്ക്കരണത്തെക്കുറിച്ച് സംസാരിക്കവെ അത് ദീർഘവും നിരന്തരവുമായ ഒരു പ്രക്രിയയാണെന്നും വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിനാവശ്യമായ രീതിയിൽ പൊലീസ് സേന സ്വയം സജ്ജമാകേതുന്നും ശ്രീ

ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ക്രിമിനൽ നടപടി നിയമത്തിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് കൂടിയാലോചനകൾ നടത്തേതിന്റെ ആവശ്യകതയെക്കുറിച്ച് മന്ത്രി സൂചിപ്പിച്ചു കുറ്റവാളികളെ വേഗത്തിൽ ്നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും ശിക്ഷ ഉറ്പ്പാക്കുന്നിനും ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹ്ം പറഞ്ഞു തടവുകാരോടുള്ള ജയിലധികാരികളുടെയും ജീവനക്കാരുടെയും സമീപനത്തിൽ മാറ്റം ഉാകണമെന്ന് ശ്രീ

പൊലീസ് സേനയെ കരുത്തുറ്റതാക്കുന്നതിൽ ബി

ആർ

യുടെ പങ്ക് സുപ്രധാനമാണെന്ന് മന്തി കൂട്ടിച്ചേർത്തു

അമിത്ഷാ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സർദാർ വല്ലഭായി എയർപോർട്ടിൽ രാത്രിയോടെ അദ്ദേഹം എത്തുമെന്ന് ബി ജെ

നാളെ നടക്കുന്ന മില്ലേനിയം ട്രീ പ്താന്റേഷൻ ചടങ്ങിൽ സംബന്ധിക്കുന്ന ശ്രീ അമിത്ഷാ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ സിറ്റി ബസ് സർവ്വീസും അഹമ്മദാബാദിൽ ഉദ്ഘാടനം ചെയ്യും ഗാന്ധിനഗറിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ദിശ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചടങ്ങിലും അദ്ദേഹം സംബന്ധിക്കും തുടർന്ന് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാദ്ധ്യായ പെട്രോളിയം യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിലും ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും

നാളെ ഉച്ചയ്ക്ക് മൂന്നു മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ഉദ്ഘാടനച്ചടങ്ങിൽ അങ്കണവാടി അീവനക്കാരുടെ അഭിരുചികൾ വർധിപ്പിക്കുന്നിന് വേിയുള്ള ഇംക്രിമെന്റൽ ലേണിംഗ് അപ്രോച്ച് മൊഡ്യൂളുകളുടെ പ്രകാശ്നം നിർവഹിക്കുന്ന കേന്ദ്ര മന്ത്രി പോഷൻ അഭിയാൻ ആദരിക്കുകയും ചെയ്യും സമ്പുഷ്ട കേരളം പദ്ധതിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണ്റായി വിജയൻ നിർവഹിക്കും

എസ് ആർ ഒ

എസ് ആർ ഒ

രാജ്യവ്യാപകമായി നടക്കുന്ന ഫിറ്റ് ഇന്ത്യാ മൂവ്മെന്റിന് ന്യൂഡൽഹിയിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടക്കം കുറിക്കും കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

ഇ അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ പി

സംസ്ഥാന വ്യവസായ സ്പോട്സ് യുവജന മന്ത്രി ഇ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിയമനിർമ്മാണ സഭാ അധ്യക്ഷന്മാരുടെ സമ്മേളനത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമനിർമ്മാണ സഭകളിൽ നിർമ്മാണാത്മകമായ ചർച്ചകൾ നടക്കണമെന്ന് ശ്രീ

നിയമസഭാ അംഗങ്ങൾക്ക് മാതൃകാ പെരുമാറ്റചട്ടം രൂപീകരിക്കുന്നതിന് ഒരു സമിതിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു